ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട വോട്ടെടുപ്പിനുള്ള പ്രചാരണപ്രവർത്തനങ്ങൾ ഊർജ്ജിതം

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതത്തെ ആസ്പദമാക്കിയുള്ള സിനിമയുടെ റിലീസ് തടഞ്ഞു കൊണ്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിൽ ഇടപെടാൻ സുപ്രീംകോടതി വിസ്സമ്മതിച്ചു

ഏഷ്യൻ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്ക് ഇന്ന് ഒരു സ്വർണ്ണവും രണ്ട് വെള്ളിമെഡ്ലുകളും

കോൺഗ്രസിലെ അജയ്റായ് സമാജ്വാദി പാർട്ടിയിൽ നിന്നും ശാലിനിയാദവ് എന്നിവരും മത്സരരംഗത്തുണ്ട്

പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധിയും വിവിധ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു വിശദാംശങ്ങളുമായി വീണാ മുകുന്ദൻ

മൃഗപരിപാലനത്തിലേർപ്പെട്ടിരിക്കുന്നവർക്കു കൂടി കിസാൻ ക്രെഡിറ്റ് കാർഡുകൾ ലഭ്യമാക്കിയിട്ടുണ്ട് ഗവണ്മെന്റ് തലത്തിൽ ഇ മാർക്കറ്റിംഗ് യാഥാർത്ഥ്യമാക്കിയതോടെ സ്വയംസഹായ സംഘങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷകർക്കും സ്ത്രീകൾക്കും തങ്ങളുടെ ഉത്പന്നങ്ങൾ ഓൺലൈനായി വില്പന നടത്താൻ സാധിക്കുന്നുണ്ടെന്നും ശ്രീ

പ്രതിപക്ഷത്തിന്റെ കുടുംബവാഴ്ചയ്ക്ക് അന്ത്യമായതായും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു ബീഹാറിലെ സമഷ്ടിപ്പൂരിൽ കോൺഗ്രസ് ആർജെഡി സംയുക്ത റാലിയെ കോൺഗ്രസ് അദ്ധ്യക്ഷൻ രാഹുൽഗാന്ധി അഭിസംബോധന ചെയ്തു ന്യായ്പദ്ധതിയ്ക്ക് വേണ്ടി ആരും ചിലവഴിക്കേണ്ടി വരില്ലെന്ന് ശ്രീ

ന്യൂസ് ഡസ്ക് ആകാശവാണി

ഡൽഹിയിലെ പ്രമുഖ രാഷ്ട്രീയപാർട്ടികളായ ബിജെപി ആംആദ്മി പാർട്ടി കോൺഗ്രസ് എന്നിവ റോഡ്ഷോകളും പൊതു സമ്മേളനങ്ങളും നടത്തിയാണ് വോട്ടർമാരെ സ്വാധീനിക്കുന്നത്

പ്രദർശിപ്പിക്കാമോ എന്നതാണ് വിഷയമെന്നും ഇതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനം എടുത്തിട്ടുണ്ടെന്നും അതിനാൽ വിഷയത്തിൽ ഇടപെടുന്നില്ലെന്നും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അധൃക്ഷനായ ബഞ്ച് വൃക്തമാക്കി തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ചിത്രത്തിന് അനുമതി നൽകിക്കൊണ്ടുള്ള സെൻട്രൽ ബ് സർട്ടിഫിക്കേഷന്റെ തീരുമാന്മത്തിന്റ് എതിരാണെന്നും നിർമാതാക്കൾക്ക് വേണ്ടി ഹാജ്രായ് ്അഭിഭാഷകർ കോടതിയെ അറിയിച്ചു

കഴിഞ്ഞ മാസം അറസ്റ്റിലായ നിരവ് മോദി നിലവിൽ ലണ്ടനിൽ ജയിലിലാണ് ജയിലിൽ നിന്നും വീഡിയോ കോൺഫറൻസിംഗ് മുഖേനയാണ് ഇയാൾ വെസ്റ്റ്മിൻസ്റ്റർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരായത്

ഇരുവരും പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ബസ്സ്പ്പെട്ട ് പണം തട്ടിപ്പ് കേസിൽ ഉൾപ്പെട്ടവരാണ് നീരവ് മ്മോദിയുടെ പത്തും മെഹുൽ ചോക്സിയുടെ രണ്ടുപ്പു വാഹനങ്ങളാണ് ലേലത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്

ചൌഹാനാണ് മരണപ്പെട്ടത് കപ്പൽ രാവിലെ കാർവാർ തുറമുഖത്തേയ്ക്ക് കടന്നപ്പോഴാണ് തീപിടുത്തമുണ്ടായത് ഉടൻതന്നെ നിയന്ത്രണ നടപടികൾ ചെയ്തതുമൂലം കൂടുതൽ അപകടം ഉണ്ടായില്ല ലെഫ്റ്റനന്റ് കമാൻഡർ ഡി

ചൌഹാന്റെ നേതൃത്വത്തിലായിരുന്നു പ്രതിരോധ പ്രവർത്തനങ്ങൾ നടന്നത് ജീവൻ പണയം വച്ചു നടത്തിയ പ്രവർത്തനങ്ങളിൽ പരിക്കേറ്റ അദ്ദേഹത്തെ കാർവാറിലെ നാവിക ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല

ഭീകരാക്രമണത്തിന്റെ ലക്ഷൃങ്ങളും രീതികളും സൂചിപ്പിച്ചുകൊണ്ട് ഈമാസം നാലിന് ഒരുക്കു സൌഹൃദരാഷ്ട്രം ഇന്റലിജന്റ്സിന് വിശദമായ വിവരങ്ങൾ നൽകിയിരുന്നതായി ശ്രീലങ്കൻ പ്രസിഡന്റ് കൊളംബോയിൽ വീർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

രാജ്യത്ത് നിന്ന് ഭീകരവാദത്തെ തുടച്ചുനീക്കാനും സമാധനാന്തരീക്ഷം സൃഷ്ടിക്കാനും സുരക്ഷാസേന പ്രാപ്തമാണെന്നും അദ്ദേഹം അതേസമയം ശ്രീലങ്കയിൽ അതീവ ജാഗ്രത പറഞ്ഞു

ഇവരെ കണ്ടെത്താനുള്ള ഊർജ്ജിത പരിശോധനകളിലാണ് അന്വേഷണ ഏജൻസികൾ വിദേശികളടക്കം മുന്നൂറിലധികം പേരുടെ ജീവനെടുത്ത ശ്രീലങ്കയിലെ സ്ഫോടനങ്ങൾക്ക് പിന്നിൽ നാഷണൽ തൌഹീദ് ജമാ അത്തെന്ന പ്രാദേശിക തീവ്രവാദ സംഘടനയാണെന്ന് ശ്രീലങ്കൻ സർക്കാർ വ്യക്തമാക്കിയിരുന്നു

ഐ എസ് കേന്ദ്രങ്ങളിൽ എത്തപ്പെട്ടതായി തെളിഞ്ഞ ഇന്റർപോൾ തേടുന്ന കാസർഗോഡ് നിന്നുള്ളവരിൽ ഏതാനും പേർ ശ്രീലങ്കൻ സന്ദർശനങ്ങൾ നടത്തിയിരുന്നത് നാഷണൽ തൌഹീദ് ജമാ അത്തിന്റെ പ്രവർത്തങ്ങളിൽ പങ്കാളികളാകാനാണെന്ന സംശയവും അന്വേഷണ ഏജൻസികൾക്കുണ്ട് ശ്രീലങ്കൻ സ്ഫോടനത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഐ എസ് പുറത്തിറക്കിയ വീഡിയോ ദൃശ്യങ്ങളുടെ മലയാളംതമിഴ് മൊഴിമാറ്റങ്ങൾ കൂടി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് മലയാളി ബന്ധത്തിനും തെളിവുകൾ ലഭിച്ചത് അറബിക് ഇംഗ്ലീഷ് ഭാഷകളിലായിരുന്ന വീഡിയോ പ്രാദേശിക ഭാഷകളിലേക്ക് മാറ്റി പ്രചരിപ്പിക്കുകയും ചെയ്തത് ദക്ഷിണേന്ത്യയിലെ യുവാക്കളെ ലക്ഷ്യമാക്കിയിരുന്നുവെന്ന നിഗമനത്തിന് അന്വേഷണ ഏജൻസികൾ ശ്രീലങ്കയിൽ വൻ സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യുന്നുണ്ടെന്ന രഹസ്യ വിവരം എൻ ഐ എ ശ്രീലങ്കയ്ക്ക് കൈമാറിയിരുന്നു ന്യൂസ് ഡസ്ക് ആകാശവാണി

ഗ്രാം വിഭാഗത്തിൽ സ്വർണ്ണ് ഐടി ബോക്സിംഗ് താരം അമിത് പംഘൽ ഈ വർഷത്തെ തിട്ടർച്ചയായ രണ്ടാം സ്വർണ്ണ നേട്ടത്തിന് അർഹനായി ക്കൊറിയൻ താരത്തെയാണ് പംഘൽ പരാജയപ്പെടുത്തിയത്

ഗ്രാം വിഭാഗത്തിൽ ദേശീയ ചാമ്പ്യൻ ദീപക് സിംഗും കവീന്ദർ സിംഗ് ബിഷ്ടും കനത്ത മത്സരത്തിനൊടുവിൽ വെള്ളിമെഡൽ നേടി

വർഗ്ഗീയമായ പരാമർശം നടത്തിയെന്നാണ് പരാതി

ആശുപത്രിയിലാണ് മദ്രാസ് ഹൈക്കോടതിയുടെ ഏപ്രിൽ നാലിന്റുല്ള വിധി ചോദ്യം ചെയ്തുകൊണ്ടുള്ള അപ്പീൽ പരിഗ്ജ്ജിക്ക്വേ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയുടെ അധ്യക്ഷത്യിലുള്ള ബഞ്ചാണ് നടപടികൾ സ്റ്റേ ചെയ്തത്